കുറ്റക്കാരെന്ന് സി ബി ഐ പ്രത്യേക കോടതി

ബി ഐ പ്രത്യേക കോടതി

ഒന്നും പ്രതികൾക്കെതിരെ കൊലക്കുറ്റവും മറ്റുപ്രതികൾക്കെതിരെ വ്യാജരേഖ ചമയ്ക്കൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങളുമാണ് ചുമത്തിയിരിക്കുന്നത്

മൂന്നാംപ്രതി വിചാരണയ്ക്കിടെ മരിച്ചിരുന്നു

തുടർന്ന് ചോദ്യം ചെയ്യലിനിടെ പോലീസ് സ്റ്റേഷനിൽവച്ച് ഉദയകുമാർ മരിക്കുകയായിരുന്നു